ജാർഖണ്ഡിൽ മൂന്നാം ഘട്ട പോളിങ് ആരംഭിച്ചു

ദേശീയ പൌരത്വ ഭേദഗതി ബിൽ പാർലമെന്റ് പാസ്സാക്കി ബിൽ രാജ്യസഭയിൽ പാസായതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്തോഷം പ്രകടിപ്പിച്ചു

റാഞ്ചി രാംഗർഹ് ഹസാരിബാഗ് കോടർമ ഛത്ര ഗിരിദിഹ് സരയ്കേല ഖർസാവൻ ജില്ലകളിലാണ് ഇന്ന് വോട്ടെടുപ്പ് പോളിങ് ഏഴ് മണിക്ക് ആരംഭിച്ചു

ബർവാദ വിമാനത്താവള മൈതാനിയിൽ ചേരുന്ന പൌത്ത്യോഗത്തിൽ അദ്ദേഹം ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ്വോട്ട് അഭ്യർത്ഥിക്കും കോൺഗ്രസ് മുൻ അധ്യക്ഷൻ രാഹുൽഗാന്ധി ഇന്ന് സാന്തൽ പർഗാനയിൽ പ്രസംഗിക്കും

പ്രതിപക്ഷം കൊണ്ടുവന്ന ഭേദഗതികൾ വോട്ടിനിട്ട് തള്ളിയാണ് സഭ ബിൽ പാസാക്കിയത്

ഹിന്ദു സിഖ് ബുദ്ധ ജൈന പാർസി ക്രിസ്ത്യൻ മതവിഭാഗത്തിൽപ്പെട്ടവർക്കാണ് പൌരത്വം നൽകുന്നത് ഈ ബിൽ മുസ്തീങ്ങൾക്ക് എതിരല്ലെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു രാജ്യത്തെ പൌരന്മാർ എന്ന നിലയിലുള്ള എല്ലാ അവകാശങ്ങളും തുടർന്നും ലഭിക്കും

അവരുടെ സാംസ്കാരികവും ഭാഷാപരവുമായ വ്യക്തിത്വം സംരക്ഷിക്കാൻ എൻ

എ ഗവൺമെന്റ് ബാധ്യസ്ഥമാണെന്നും ആഭ്യന്തരമന്ത്രി പറഞ്ഞു പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ മതപരമായ വിവേചനം നേരിടുന്നവർക്ക് പുതിയ വെളിച്ചുമാണ് ബില്ലിലൂടെ ഉണ്ടാകുന്നതെന്നും ശ്രീ അമിത്ഷാ പറഞ്ഞു ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഇന്ത്യയുടെ ചരിത്ര ദിനമാണിത്

വ്ർഷങ്ങളായി ഒരുപാട്പേർ അനുഭവിച്ചിരുന്ന മതപരമായ വിവേചനം ഇല്ലാതാകുമെന്നും ശ്രീ

ബില്ലിനെ അനുകൂലിച്ച എല്ലാ അംഗങ്ങൾക്കും പ്രധാനമന്ത്രി നന്ദി അറിയിച്ചു വർഷങ്ങളായി ഇരകളാക്കപ്പെട്ടിരുന്ന കോടിക്കണക്കിന് ആളുകളുടെ സ്വപ്നം യാഥാർത്ഥ്യമായെന്ന് ആഭ്യന്തരമന്ത്രി അമിത് ഷാ പ്രതികരിച്ചു പ്രധാനമന്ത്രിക്കും ബില്ലിനെ അനുകൂലിച്ച എല്ലാ അംഗങ്ങൾക്കും ശ്രീ

അയൽരാജ്യങ്ങളിൽ നിന്നും എത്തിയവർക്ക് അന്തസ്സോടെ ജീവിക്കാൻ നിയമം അവസരമൊരുക്കുമെന്ന് കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ വകുപ്പു മന്ത്രി പ്രകാശ് ജാവ്ദേക്കർ പ്രതികരിച്ചു

ബിജെപിയുടെ ധ്രുവീകരണ നയത്തിനെതിരെ കോൺഗ്രസ്സ് അക്ഷീണം പ്രയത്നിക്കുമെന്ന് ഒരു പ്രസ്താവനയിൽ അവർ അറിയിച്ചു

ഇന്നലെ ന്യൂഡൽഹിയിൽ ചേർന്ന എട്ടാമത് ഭീകരവിരുദ്ധ സംയുക്ത പ്രവർത്തക സമിതിയിൽ ഇരുരാജ്യങ്ങളും കൂടുതൽ സഹകരിച്ചു പ്രവർത്തിക്കാൻ തീരുമാനിച്ചു

ഭീകരശൃംഖല ഭീകരപ്രവർത്തകരുടെ സുരക്ഷിത താവളങ്ങൾ സാമ്പത്തിക കൈമാറ്റം നുഴഞ്ഞുകയറ്റും തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയായി

വിഷയത്തിൽ അന്വേഷണര് ക്ടത്താൻ സുപ്രീംകോടതി മുൻ ജഡ്ജിയെ നിയമിക്കണമെന്ന് ചീഫ് ജസ്റ്റീസ് എസ്

സംസ്ഥാന ഗവൺമെന്റ് സംസ്ഥാന കുറ്റാന്വേഷണ വിഭാഗത്തിന് കേസ് കൈമാറിയിട്ടുണ്ടെന്ന് അവർ വ്യക്തമാക്കി കഴിഞ്ഞ വെള്ളിയാഴ്ച പോലീസുമായുണ്ടായ ഏറ്റുമുട്ടലിൽ പ്രതികൾ കൊല്ലപ്പെട്ടതായാണ് തെലങ്കാന പോലീസ് അറിയിച്ചത് അന്വേഷണത്തിന്റെ ഭാഗമായി പ്രതികളെ തെളിവെടുപ്പിന് കൊണ്ടുപോയപ്പോഴാണ് ഏറ്റുമുട്ടൽ ഉണ്ടായത്

ഇതിനു പുറമെ കുൽദീപ് യാദവ് ഭുവനേശ്വർ കുമാർ ദീപക് ചാഹർ മുഹമ്മദ് ഷമി എന്നിവർ രണ്ടു വിക്കറ്റ് വീതം വീഴ്ത്തി

മൂന്നു മത്സരങ്ങളടങ്ങിയ ഇന്ത്യ വെസ്റ്റിൻഡീസ് ഏകദിന പരമ്പരയ്ക്ക് ഞായറാഴ്ച ചെന്നൈയിൽ തുടക്കമാവും ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഇന്ന്ലെ ചൈനയിലെ ഗുവാങ്ഷൂയിൽ നടന്ന ആദ്യ മൽസരത്തിൽ സിസ്പ്യ് ജപ്പാ്ന്റെ അകാനേ യമാഗുച്ചിയോട് പരാജയപ്പെട്ടിരുന്നു

ഇന്ന് നടക്കുന്ന മൽസരത്തിൽ ചൈനയുടെ ്രിഷ്ട് ബിങ് ജിയാവോയെ സിന്ധു നേരിടും

യൂറോപ്യൻ യൂണിയനിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള ബ്രിട്ടന്റെ തീരുമാനമായ ബ്രക്സിറ്റ് പ്രതിസന്ധിയെ മറികടക്കാനാണ് പൊതുതെരഞ്ഞെടുപ്പ് നടത്തുന്നത്

യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള ബ്രിട്ടന്റെ പിന്മാറ്റമാണ് ഇത്തവണ പ്രചാരണത്തിൽ പ്രധാന സ്ഥാനം വഹിച്ചത്

ജമാ അത്ത് ഉദ് ദവ ഭീകര സംഘടനയുടെ തലവനായ ഹാഫിസ് സയീദിനൊപ്പം മൂന്ന് അനുയായികൾക്കെതിരെയും കുറ്റം ചുമത്തിയിട്ടുണ്ട് ഭീകരാക്രമണ കേസിലെ പ്രതികൾക് അന്താരാഷ്ട്ര നിയമപ്രകാരമുള്ള കുറ്റ വിചാരണ ഉറപ്പാക്കണമെന്ന് ദക്ഷിണ മധ്യ ഏഷ്യയുടെ ചുമതലയുള്ള അമേരിക്കൻ സെക്രട്ടറി ആലീസ് ജി

നാലു പ്രതികളെയും കോടതിയിൽ ഹാജരാക്കാൻ ലാഹോറിലെ ഭീകരവിരുദ്ധ കോടതി ജഡ്ജി അർഷദ് ഹുഐസ്സ് ഭൂട്ട ഉത്തരവിട്ടു

ചീഫ് ജസ്റ്റിസ് ഗീത മിത്തൽ ജസ്റ്റിസ് രാജേഷ് ബിൻഡാൽ എന്നിവരടങ്ങിയ ബഞ്ചാണ് അഭിഭാഷകർക്കെതിരെ കോടതി അലക്ഷ്യ കേസെടുക്കാതിരിക്കാൻ വിശദീകരണം ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയത് കഴിഞ്ഞ നവംബർ ഒന്നുമുതൽ നടക്കുന്ന അഭിഭാഷകരുടെ പണിമുടക്ക് കാരണം ജമ്മു കാശ്മീർ ഹൈക്കോടതിയിലെയും കീഴ്ക്കോടതികളിലെയും പ്രവർത്തനങ്ങൾക്ക് തടസം നേരിടുകയാണ്